എന്നാൽ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും പ്രധാനമന്ത്രി

ഭീകരപ്രവർത്തനങ്ങൾ അഴിച്ചുവിടുന്നതായി യു എൻ

തടയുന്നതിനും ഉള്ള പ്രവർത്തനങ്ങളിൽ ഐകൃരാഷ്ട്ര സംഘടനയുടെ പ്രധാന പങ്കാളിയാണ് ഇന്തൃ എന്ന് യു

സുപ്രീംകോടതി വിധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചചെയ്യാൻ നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം

അനന്ത് ജില്ലയിലെ മൊഗാർ ഗ്രാമത്തിൽ അമുൽ ക്ഷീരോത്പാദന കേന്ദ്രത്തിലെ ചോക്കലേറ്റ് പ്താന്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു

മോദി ഉദ്ഘാടനം ചെയ്തു

പശ്ചിമ ബംഗാളിലെ ഉം കൊൽക്കത്തയിൽ അമുലിന്റെ പ്രഥമ ക്ഷീരോത്പാദന കേന്ദ്രത്തിന് ശ്രീ മോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ തറക്കല്ലിട്ടു

ആകാശവാണിയിലെ പ്രതിമാസ് പ്രെഭാഷണ പരിപാടിയായ മൻകി ബാതിലൂടെ രാജൃത്തോട് സ്ട്സ്റ്റരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

എൻ സമാധാന സ്റ്റ്ന്യിലേയ്ക്ക് ഏറ്റവുംകൂടുതൽ വിഹിതം നൽകുന്ന രാജ്യങ്ങളില്പൊന്ന്ാണ് ഇന്ത്യ ദശകങ്ങളായി വീരന്മാരായ സൈനികർ നീല ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് ലോകത്ത് ശാന്തി സ്ഥാപിക്കാൻ മഹത്തായ ശ്രമമാണ് നടത്തിവരുന്നത് രാജ്യത്തിന്റെ സമാധാനത്തിനും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്നവർക്ക് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുമെന്ന് ബോധ്യപ്പെട്ടതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി

സ്വഛ്ഭാരത് മിഷൻ കേവലം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറിച്ച് ലോക മെങ്ങും വിജയഗാഥയായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത് ഉന്നതതല പ്രതിനിധി സംഘവും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്

തുടർന്ന് അദ്ദേഹം രാജ് ഘട്ടിലെത്തി

നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്ര പതി എം വെങ്കയ്യനായിഡു വിദേശകാരൃമന്ത്രി സുഷമ സ്വരാജ് എന്നിവരുമായും ഉസ്ബെകിസ്ഥാൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും

കർണാടക ഗുഡ് ശമരിയ ബിൽ മെഡിക്കൽ ക്ല പ്രൊഫഷണൽ ബിൽ എന്നിവയ്ക്കാണ് രാഷ്ട്രപതി അംഗ്ലീക്യൂർ നൽകിയത് ഗുഡ് ശമരിയർക്ക് നിയമ സംരക്ഷണം പ്ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കർണാടക

എല്ലാ സംസ്ഥാന ങ്ങളിലും അവംലംബിക്കേണ്ട മാർഗ്ഗങ്ങളെക്കുറിച്ച് രണ്ടുദിവസത്തെ യോഗം ചർച്ചചെയ്യും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് പരിപാടിയുടെ ലോഗോ ആയ ഗ്യാൻകുംഭ് അനാവരണം ചെയ്ത് കൊണ്ട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്രസിംഗ് റാവത്ത് പറഞ്ഞു

യാത്രകളിലൂടെയും ചർച്ചകളിലൂടെയും സമകാലികതയെക്കുറിച്ച് യുവാക്കൾക്ക് അവബോധം നൽകുന്ന പാരമ്പര്യം നമ്മുടെ പൂർവ്വികർക്കുണ്ടായിരുന്നുവെന്ന് ശ്രീമതി

ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിലെ സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി തിരുവിതാംകൂർ ദേവസ്വംബോർഡ് ചർച്ച നടത്തി മുഖ്യമന്ത്രി യുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശത്തോടെയും പിന്തുണയോടെയും ഭക്തർക്കായി അടിസ്ഥാനസൌകര്യങ്ങളും ക്രമീ കരണങ്ങളുമൊരുക്കുമെന്ന് ദേവസ്വം പ്രസ്സിഡന്റ് എ പത്മകുമാർ പറഞ്ഞു

പൊതുസഭയിൽ ഇന്ത്യ

ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മൂദ് ഖുറേഷിയുടെ നടത്തിയ പ്രസംഗത്തിലാണ് ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണം അടിസ്ഥാന രഹിതമാണെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ഈനം ഗംഭീർ ഐക്യരാഷ്ട്ര സഭയിൽ മറുപടി നൽകി ആരോപണം അപഹാസ്യ മാണെന്നും അയൽരാജ്യങ്ങളിൽ ആധിപതൃം സ്ഥാപിക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ ആഗ്രഹമാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയി ക്കാൻ കാരണമെന്നും ഈനം ഗംഭീർ വ്യക്തമാക്കി

ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥിന്റെ പൊയ്മുഖം തുറന്നുകാട്ടാൻ ശ്രീമതി സുഷമ സ്വരാജിന്റെ പ്രസംഗത്തിന് കഴിഞ്ഞതായി ശ്രീ

പാകിസ്ഥാൻ ഇന്ത്യയ്ക്കെതിരെ നടത്തുന്ന ഭീകര പ്രവർത്തനത്തെ ശക്തമായി അപലപിച്ചായിരുന്നു സുഷമ സ്വരാജ് ഇന്നലെ യു

പൊതുസഭ യിൽ സംസാരിച്ചത്

ഒ

വെള്ള നിറത്തിലെ ഹെലികോപ്റ്റർ ഗുൽപൂർ സെക്ടറിലെ കർമ്മാര ഗ്രാമത്തിലാണ് നിയന്ത്രണ രേഖ ലംഘിച്ചത് കഴിഞ്ഞ മാസവും പാക്സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ നിയന്ത്രണ രേഖയിൽ കാണപ്പെട്ടിരുന്നു

നാളെ ഇന്ത്യയിലേയ്ക് നടത്താനിരിക്കുന്ന മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അന്റോണിയോ ഗുട്ട്റസ്

തീവ്രവാദത്തെ ചെറുക്കുന്നതിന് എല്ലാ രാജ്യങ്ങളൂം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഗാന്ധിജിയുടെ ലോക സമാധാന വീക്ഷണം മുൻ നിർത്തി ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയാണ് ദിനാചരണ ത്തിന്റെ ലക്ഷ്യം

മരണസംഖ്യ ആയിരം കവിയുമെന്ന് ഇന്ത്യോനേഷ്യൻ വൈസ് പ്രസിഡന്റ്റ് പറഞ്ഞു